ആസിയാൻ രാജൃങ്ങളിൽ നിന്നുള്ള ഐ ഐ

വിദ്യാർത്ഥികൾക്ക് ആയിരം പി എച്ച് ഡി ഫെലോഷിപ്പുകൾ

പാലാരിവട്ടത്ത് പുതിയ മേൽപ്പാലം പണിയാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു

ശ്രീധരൻ മേൽനോട്ടം വഹിക്കും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയ്സ് ഹൂസ്റ്റണിലെ ഹൌഡി മോദി പൊതുസമ്മേളനത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പങ്കാളിത്തം അമേരിക്കൻ സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രത്യേക സൌഹൃദത്തിന് തെളിവാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഹൌഡി മോദി പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ പങ്കാളി ത്തം ഉറപ്പിച്ചുകൊണ്ട് വൈറ്റ്ഹൌസ് നേരത്തെ പത്രപ്രസ്താവന പു റത്തിറക്കിയിരുന്നു

ഇരു നേതാക്കളും തമ്മിൽ ഈവർഷം നടത്തുന്ന മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണിത്

ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള നടപടികളാണ് ജമ്മുകാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ചെയ്യേണ്ടതെന്നും കോടതി വ്യക്തമാക്കി

ബോബ്ഡേ എസ്

നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് ജമ്മുകാശ്മീരിനെ സാധാരണ നിലയിലാക്കാൻ സ്വീകരിച്ച നടപടികളെ കുറിച്ച് അറ്റോർണി ജനറൽ കെ

ഇത് വരെ സ്ഥീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി അറ്റോർണി ജനറലിനോട് ആവശ്യപ്പെട്ടു മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ച നടപടിയെ ചോദ്യം ചെയ്തുള്ള ഫർജികൾ ജമ്മുകാശ്മീർ ഹൈക്കോടതി പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു ഹർജിക്കാരന് വേണ്ടി അഡ്ക്കേറ്റ് വൃന്ദ ഗ്രോവർ ഹാജരായി

ഹർജിക്കാർ ഉന്നയിച്ച വാദഗതികൾ ശരിയല്ലെന്നും കാശ്മീരിൽ നിന്നുള്ള ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നും കെ

വേണുഗോപാൽ കോടതിയെ അറിയിച്ചു അതേസമയം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന് ജമ്മുകാശ്മീർ സന്ദർശിക്കാനുള്ള അനുമതി കോടതി നൽകി എന്നാൽ എന്തെങ്കിലും ത്രത്തിലുള്ള രാഷ്ട്രീയ റാലി നടത്താൻ അദ്ദേഹത്തിന് അനുവാദമില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു

ജെ

നേതാക്കളെ ജമ്മുവിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജെ

ഈ നടപടിയുടെ ഗുണഫലം ജാതിമത ഭേദമന്യെ ജമ്മുകാശ്മീർ ജനതയ്ക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രത്യേക പദവി റദ്ദാക്കിയത് മേഖലയിൽ കൂടുതൽ വിക്സനം സാധ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാറാണ് ര്തുൽ പുരിയെ മൂന്നു ദിവസം കൂടി ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയത്

വി ഐ

ഹെലികോപ്റ്റർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപാടിന്മേലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്റേറ്റ് കേസെടുത്തത്

പ്രളയബാധിത പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി അശോക് ഗെഹലോട്ട് വ്യോമ നിരീക്ഷണം നടത്തി ലോക്സഭാ സ്പീക്കർ ഓംബിർലയും കോട്ടയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് അവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി

കഴിഞ്ഞ ദിവസം മാത്രം ഒമ്പത് ഇഞ്ച് മഴയാണ് മാൻഡ്സൌറിൽ ലഭിച്ചത്

ശ്രീധരൻ സമർപ്പിച്ച റീപ്പോർട്ട് അംഗീകരിച്ചാണ് നടപടി പാലത്തിന്റെ പുനരുദ്ധ്യാരണ്മോ ശക്തിപ്പെടുത്തലോ ഫലപ്രദമല്ലെന്നാണ് വില്യിരുത്തലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാലം പുതുക്കിപ്പണിയുന്നതാണ് അടുത്തമാസം ആദ്യം നിർമാണം തുടങ്ങുന്ന പാലം നിർമ്മാണം ഒരു വർഷംകൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിർമാണ പ്രവർത്തനങ്ങളുടെ പൊതു മേൽനോട്ടം വഹിക്കണമെന്ന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന ശ്രീ ഇ ശ്രീധരൻ അംഗീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം എടുക്കുമെന്ന് പി എസ് സി ചെയർമാൻ ഉറപ്പു നല്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ ചോദ്യക്കടലാസ് മലയാളത്തിലാക്കാൻ അറിയിച്ചു

മലയാളത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ സാങ്കേതിക പദങ്ങൾ എങ്ങനെ പരാമർശിക്കുമെന്നതിനെ ക്കുറിച്ച് പഠിക്കാൻ ഉന്നതസമിതിയെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഫ്ളാറ്റ് ഒഴിയാനായി നഗരസഭ നൽകിയ സമയപരിധി ഇന്നള്ലെ അവസാനിച്ചിരുന്നു

വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ പച്ചക്കൊടി വീശി അശ്വരൂഡ സേനയും വിവിധ സേനാവിഭാഗങ്ങളുടെ ബാന്റും ഘോഷയാത്ര വർണാഭമാക്കി

കേരളീയ കലാരൂപങ്ങൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകുന്നു

ഈ സൌകര്യം കയറ്റുമതിക്കാർക്കായി വ്യാപിപ്പിക്കുവാൻ ശ്രീ

കയറ്റുമതിക്കാർക്ക് വായ്പാ ലഭ്യത ഉറപ്പുവരുത്താൻ നിര്യാത് റിൻ വികാസ് പദ്ധതി നടപ്പിലാക്കിയതായും മന്ത്രി പറഞ്ഞു വായ്പാ നടപടികൾ ലളിതമാക്കുവാൻ പദ്ധതി സഹായിക്കും

കളിൽ പഠിക്കുന്ന ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥീകൾക്ക് ആയിരം ഫെലോഷിപ്പുകൾ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമായി പങ്കാളിത്ത മൂല്യമാണ് ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറയെന്ന് വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ വ്യക്തമാക്കി മാനവവിഭവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്കിനൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പദ്ധതിയിലൂടെ അഞ്ച് വർഷത്തെ പി എച്ച് ഡി പഠനത്തിന് വേണ്ട മുഴുവൻ പഠന ചെലവും ജീവിത ചെലവും ഇന്ത്യൻ ഗവൺമെന്റ് വഹിക്കും

കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകൾക്ക് പുറകെ പോകാതെ വാർത്തയിൽ വിശ്വാസ്യത നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് ജനങ്ങൾക്ക് ദൂരദർശൻ വാർത്തകളോട് പ്രിയമെന്നും മന്ത്രി പറഞ്ഞു കശ്മീരിലും മറ്റ് സംസ്ഥാനങ്ങളിലും ദൂരദർശന് സ്വീകാര്യത ലഭിക്കുന്നത് ഇതിനാൽ ആണെന്നും ശ്രീ

ന്യൂഡൽഹിയിൽ ദൂരദർശന്റെ അറുപതാമത് സ്ഥാപകദിന വാർഷികാഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി ഇതോടനുബന്ധിച്ച് അനുസ്മരണ സ്റ്റാമ്പും പ്രത്യേക ലഘുലേഖയും ശ്രീ ജാവ്ദേക്കർ പുറത്തിറക്കി

പ്രള്യസാഹചര്യം നിലനിൽക്കുന്നതിനാൽ അണക്കെട്ടിലെ ജലനിരപ്പും തുറന്നുവിടുന്ന ജലത്തിന്റെ അളവും സൂക്ഷ്മം നിരീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു

സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുന്ന നമാമി ദേവി നർമ്മദേ മഹോത്സവിലും അദ്ദേഹം പങ്കെടുക്കും സർദാർ അണക്കെട്ടിലെ ജലനിരപ്പ് ആദ്യമായി ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതിനോട് അനുബന്ധിച്ചാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്

കൊടേല ശിവ പ്രസാദ് റാവുവിനെ ഹൈദരാബാദിൽ ഇന്ന് പുലർച്ചെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണെന്ന് പോലീസ് അറിയിച്ചു

ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യെമനിലെ ഹൂദി വിമതർ ഏറ്റെടുത്തിരുന്നു